ഗുജറാത്ത് കേവാഡിയയിലെ സർദാർ സരോവർ അണക്കെട്ടിലെ ജല സംഭരണ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജ അർപ്പിച്ചു

കർത്താർപൂർ ഇടനാഴിയുടെ നിർമ്മാണം നിശ്ചിത സമയത്തിന് തന്നെ പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രം

പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തുന്നു

ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി

നേരത്തെ നർമ്മദാ ജില്ലയിലെ കേവാഡിയ ഡാം പരിസരത്ത് എത്തിയു അദ്ദേഹം വിവിധ പദ്ധതികളുടെ പ്രവർത്തനം നേരിൽ ക ് പുരോഗിതി വിലയിരുത്തി ജംഗൽ ടൂറിസം ഇക്കോ ടൂറിസം കള്ളിമുൾ പൂർന്താട്ടം ഏകതാ നഴ്സറി ന്യൂട്രീഷൻ പാർക്ക് ശലഭങ്ങളുടെ പാർക്ക് തൃ്യൂടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനമാണ് പദ്ധതിയുടെ ഭാഗമായി പ്പുരോഗമിച്ചുകൊ ിരിക്കുന്നത് ഗുജറാത്തിന്റെ ജീവനാഡിയായ സർദാർ സരോവർ ഡാമിൽ ജല സംഭരണി നിറഞ്ഞതിന്റെ ആഘോഷം സംസ്ഥാനം മുഴുവൻ കൊ ാടുകയാണെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു നമാമി ദേവി നർമ്മദേ മഹോത്സവത്തോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും സംസ്ഥാനത്തുടനീളം ആഘോഷിക്കുന്നു

ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൻ കീഴിൽ നവ ഇന്ത്യയ്ക്കായുളള സംയുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതായി ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രീയത്തിന് നൂതന പാത കാട്ടികൊടുക്കുക മാത്രമല്ല ദശാംബ്ദങ്ങളായി തുടർന്നു പോരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കടെ ത്തുക വഴി എല്ലാവർക്കും അഭിമാനമായി മാറുകയും ചെയ്തെന്ന് ആഭൃന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു

മോദി ഇനിയൂക്ക് എ്ല്ലാവർക്കും പ്രചോദനമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിൽ എത്തുന്ന സംഘം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും സംഘത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലാവാസ സുഷീൽ ചന്ദ്ര തുടങ്ങിയവർ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷിനേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ദിവസം ചർച്ച നടത്തും

നിയമസഭാ തെരെഞ്ഞെടുപ്പ് തീയതി തെരെഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്താഴ്ച പ്രഖ്യാപിച്ചേക്കും

അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് കൊൽക്കത്താ ഹൈക്കോട്തിയുടെ വിലക്ക് കോടതി പിൻവലിച്ചിരുന്നു അതേസമയം അദ്ദേഹം നല്കിയ മുൻകൂർ ജാമ്യാപേക്ഷ ബർസാത് കോട്ടതി ്നിരസിച്ചു

ബോട്ടപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി വൈ

ജഗൻ മോഹൻ റെഡി ഉത്തരവിട്ടു കൂടുതൽ വിവരങ്ങളുമായി ലിഖിത ആന്ധ്രാപ്രദേശിൽ ബോട്ടപകടമു ായ സ്ഥലം വ്യോമനിരീക്ഷണം നടത്തുകയും ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും ചെയ്ത ശേഷം ഇന്നലെയാണ് മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡി അനേഷണം പ്രഖ്യാപിച്ചത് ഒരു ചെയർമാന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സമിതിയാണ് അന്വേഷണം നടത്തുകയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അനാസ്ഥ ഉ ായതായി പറഞ്ഞ മുഖ്യമന്ത്രി മൂന്നാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു

ആന്ധ്രാപ്രദേശിൽ മഴയും വെളളപ്പൊക്കവും രൂക്ഷമായ സാഹചര്യത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ കൂടുതൽ ദുഷ്ക്കരമായി

സൈന്യവും ദേശീയദുരന്ത നിവാരണ സേനയും ചേർന്ന് നൂറിലധികം പേരെ സുരക്ഷിതസ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചു

താഴ്ന്ന മേഖലകളിൽ നിന്ന് വെളളം ഒഴിഞ്ഞു തുടങ്ങി

മാരും ഭരണകക്ഷിയായ കോൺഗ്രസിൽ ലയിക്കാൻ തീരുമാനിച്ചു ഇതിനുള്ള താൽപര്യ പത്രം എം എൽ എ മാർ ഇന്നലെ രാത്രി സ്പീക്കർ സി

ലയനത്തിന് മുന്നോടിയായി ആറ് എം

എ മാരും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി കൂടിക്കാഴ്ച നടത്തി

ഗോവിന്ദ് മോഹൻ പറഞ്ഞു

രാവിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ജില്ലയിലെ പ്രളയക്കെടുതി സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു ജില്ലാ കളക്ടർ ഡോ

മലപ്പുറത്ത് എത്തിയ സംഘം മഞ്ചേരിയിൽ ജില്ലാ തല ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ചർച്ചയ്ക്കുശേഷം ദൂരിതബാധിത പ്രദേശങ്ങൾ കാണാനായി പുറപ്പെടും

സംഘടന ഇന്നലെ അമേരിക്കയിലെ സീറ്റലിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചതാണ് ഇക്കാരൃം അടുത്തയാഴ്ച അമേരിക്ക സന്ദർശിക്കുന്ന് ശ്രീ

ഇന്നലെ ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് അറിയിച്ചതാണ് ഇക്കാര്യം ര ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുടെ ന്നും ഡൊണൾഡ് ട്രംപ് പറഞ്ഞു

എന്നാൽ പാക് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എപ്പോഴാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടില്ല

പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖ്ലാൻ അടുത്തിടെ നടത്തിയ അമേരിക്കൻ സന്ദർശനം അമേരിക്ക പ്പാക്ക് ബന്ധങ്ങളിൽ വഴിത്തിരിവ് ഉ ാക്കും എന്ന് പ്രതീക്ഷിച്ചവർക്ക് ഇന്റ് പ്രിപാടി തീർച്ചയായും നിരാശ പകരുമെന്ന് അമേരിക്കയിലെ പ്രിക്ടിസ്ഥാനി അംബാസിഡറായിരുന്ന ഹുസൈൻ ഹഖാനി ഒരു ഇന്ത്യൻ ഖാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു

ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഈ യജ്ഞത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും പങ്കാളികളാവണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു

ഗുജറാത്തിലെ കച്ച് ജില്ലയിലും പോഷകാഹാര കുറവ് ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ഭരണകൂടം നടത്തിവരുന്നു ജില്ലയിലെ ഒരു കുട്ടിയും പോഷക കുറവ് നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള വിവിധ നടപടികളാണ് ജില്ലാഭരണകൂടം സ്വീകരിക്കുന്നത്

ത്രിപുര മുഖ്യമന്ത്രി ബിപ്തവ് കുമാർ ദേബുമായി കൂടിക്കാഴ്ച നട്ടത്തിയ അഞ്ചംഗ ബംഗ്ളാദേശി പ്രതിനിധി സംഘമാണ് ഇക്കാര്യം അറീയിച്ചത്